സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു മൂന്ന് മുന്നണികളിലെയും പ്രമുഖർ പ്രത്രിക സമർപ്പിച്ചു

കർഷക വായ്പ മൊറട്ടോറിയം സംസ്ഥാന ഗവൺമെന്റിന്റെ അപേക്ഷ്ക്ക് ഓഫീസർ കേന്ദ്ര തെരൂഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും

തൊടുപുഴയിൽ മർദ്ദ്നത്തിനിരയായ ഏഴു വയസു കാരന്റെ നില അതീവുഗുരുതരമായി തുടരുന്നു

അസ്തൻഷാ കപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണകൊറിയയെ നേരിടുന്നു

പത്രികാ സമർപ്പണത്തിന്റെ മൂന്നാം ദിവസം മൂന്ന് മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ കൂടാതെ സ്വതന്ത്രും പത്രിക സമർപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി ലിഖിത കാസർകോട് മണ്ഡലത്തിലെ എൽ

കണ്ണൂരിലെ എൽ

എഫ് സ്ഥാനാർത്ഥി പി

കോഴിക്കോട് യു

എഫ് സ്ഥാനാർത്ഥി എം

രാഘവനും എൽ

സ്ഥാനാർത്ഥി എ

എറണാകുളത്തെ എൽ

സ്ഥാനാർത്ഥി പി

ആലത്തൂർ മണ്ഡലം എൽ

എഫ് സ്ഥാനാർഥി പി

ബിജു ഇന്ന് നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചു

എഫ് സ്ഥാനാർഥി എ എം ആരിഫും യു

എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു പത്തനംതിട്ട മണ്ഡലത്തിലെ ബി ജെ

സ്ഥാനാർത്ഥി കെ

തിരുവനന്തപുരം ് ആ്റ്റിങ്ങൽ മണ്ഡലങ്ങളിലെ എൽ

എഫ് സ്ഥാനാർത്ഥീകളായ സി ദിവാകരനും എ സമ്പത്തും ഇന്ന് പത്രിക് സ്മർപ്പിച്ചു തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിഒർശിതരൂരും ആറ്റിങ്ങലിലെ അടൂർ പ്രകാശും മറ്റന്നാൾട്ട് പുതിക സമർപ്പിക്കും ഏപ്രിൽ നാല് വരെയാണ് പത്രിക് ട്സമർപ്പിക്കാനാവുക

ഉത്തരവിറക്കാൻ അനുമതി വേണമെന്നാണ് ഗവൺമെന്റിന്റെ ആവശ്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് ഉത്തരവിറ ക്കാൻ കഴിയാതെ വന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായ തെന്നും ചീഫ് സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു

ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകരുതെന്ന് ആവശ്യപ്പെട്ട് മുസ്തീംലീഗ് രംഗത്തെത്തി തീരുമാനം ഇനി വൈകരുതെന്ന് മുസ്തീംലീഗ് നേതാവ് പി

കുഞ്ഞാലിക്കുട്ടി പാണക്കാട് ചേർന്ന അടിയന്തിരയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു

വേണുഗോപാൽ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് എ

ജനറൽ സെക്രട്ടറി കെ

അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്നും വേണുഗോപാൽ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ചെലവു നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടു വിച്ചിട്ടുള്ള മാർഗ്ഗനിർദേശങ്ങൾ പ്പാലിക്കപ്പെടുന്നു ണ്ടെന്ന് ഉറപ്പാക്കണം

എന്നാൽ മതിയായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ലെന്നും കെ

ബി ചെയർമാൻ എൻ

പിള്ള അറിയിച്ചു

അതേസമയം മസ്തിഷ്കാഘാതം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും കുട്ടി വെന്റിലേറ്ററിൽ തുടരുമെന്നും കോട്ടയത്ത് നിന്നെത്തിയ മെഡിക്കൽ സംഘം പറഞ്ഞു

സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പ്രീസ്നവും ഭക്ഷണം ലഭിക്കാത്ത തുമാണ് മരണകാരണമെന്ന് മൃആരോപണമുണ്ട്

സിബിഎസ്ഇ അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് ഇത് ബാധകമാണ് മുൻകൂർ അനുമതിയോടെ പത്ത് ദിവസം ക്യാമ്പുകളും ശില്പശാലകളും നടത്താം എന്നാൽ കുടിവെളളം ഉറപ്പാക്കണം ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ തീരുമാനം

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ടി ചരക്കു സേവന നികുതിയിൽ വരുത്തിയ മാറ്റങ്ങൾ നാളെ അർദ്ധരാത്രിമുതൽ നിലവിൽ വരും

ടി യിൽ വരുത്തിയുള്ളപ്പുകളും നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും

അല്പസ മയം മുമ്പാണ് മത്സരം ആരംഭിച്ചത് മൂന്നും നാലും സ്ഥാന ങ്ങൾക്കായി മലേഷ്യയും കാനഡയും മത്സരിക്കും